കോഴിക്കോട് ജില്ലയിലെ വില്യാപ്പിള്ളി ഇരിങ്ങണ്ണൂർ റോഡ് പരിഷ്കരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേശീ യപാത നാലുവരിയാക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു

പാലാരി വട്ടം പാലത്തിന്റെ അനുഭവം ആവർത്തിക്കാതിരിക്കാൻ കോൺട്രാ ക്ടർമാരുടെ ലൈസൻസ് വൃവസ്ഥകൾ പരിഷ്കരിക്കാൻ നടപടിയെടുക്കു മെന്നും ജി സുധാകരൻ പറഞ്ഞു

പ്രളയത്തിൽ ഇടിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് മതിൽ മൂന്ന് അഞ്ച് വളവുകളുടെ വീതികൂട്ടി നവീക രിക്കൽ തകർന്ന പാർശ്വഭിത്തികളുടെ നവീകരണം എന്നിവയാണ് പൂർത്തി യായത് രുട്ട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് ബൈപ്പാസിന്റെ ആറുവരിപ്പാത നിർമ്മാണം ഉടൻ ആരം ഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എം കെ രാഘവൻ എം

യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധ രനും പങ്കെടുത്തു രദ്ദേഷ്ടങ അടുത്ത പത്തുവർഷത്തിനകം അടിസ്ഥാന സൌകർ്യ വികസനത്തിന് ഒന്നരലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മന്ത്രി ഡോക്ടർ തോമസ് ഐസക് വെളിപ്പെടുത്തി തിരുവനന്തപുരത്ത് നബാർഡ് സ്ഥാപകദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് കേരളം ഇപ്പോൾ ഊന്നൽ നൽകുന്നത്

നബാർഡ് അടക്കം സ്ഥാപനങ്ങൾ കർഷക ഉത്പാദക സംഘ ങ്ങളെ സഹായിച്ചാൽ വയനാടിന്റെ മുഖച്ഛായ മാറ്റാനാകുമെന്നും മന്ത്രി പറഞ്ഞു രദ്ദമ്പ്പെട്ടിര തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവത്തിൽ ഏഴുപേർക്കെതിരെ പൊലീസ് വധശ്രമത്തിന് കേസെടുത്തു

എഫ് ഐ കോളജ് യൂണിറ്റ് സെക്രട്ടറി നസീം പ്രസിഡന്റ് ശിവരഞ്ജിത് തുടങ്ങിയവർ കേസിൽ പ്രതികളാണ്

എഫ് ഐ യൂണിറ്റ് കമ്മി റ്റി പിരിച്ചുവിട്ടതായി സംഘടനാ നേതൃത്വം അറിയിച്ചു കോളജ് വിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തിര റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോളജിലെ സംഭവ വികാസങ്ങളിൽ പ്രതിഷേധിച്ച് എ ഐ എസ് എഫ് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും രദ്ദമ്പ്പെട്ടറ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റ തിന് കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണെന്ന് കെ

യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് കോഴിക്കോട്ട് പറഞ്ഞു

യു പ്രചാരണം സംഘടിപ്പിക്കുമെന്നും അഭിജിത്ത് അറിയിച്ചു

എഫ് സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂരൂം ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി കോളജ് കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായിരിക്കുകയാണെന്ന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസി ഡന്റ് ടി സിദ്ദിഖും ആരോപിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട നിയമരംഗത്ത് നൽകിയ സംഭാവനകൾ മാനിച്ച് സംസ്ഥാന ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് തമിഴ്നാട് ഡോക്ടർ അംബേദ്കർ നിയമ സർവ കലാശാല ഇന്ന് രാവിലെ ഓണററി എൽ

ഡി ബിരുദം സമ്മാനിക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരിക്കും സർവകലാശാലയിൽ ബിരുദം സമ്മാനിക്കുന്നത് സുപ്രീംകോടതിയിലെ സീനിയർ ജഡ്ജി എസ് എ ബോബ്ഡെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിജയ കമലേഷ് തഹിൽ രമണി എന്നിവരും ഓണററി എൽ

കഴിഞ്ഞദിവസം പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കാവ്ലേക്കറിന്റെ നേതൃത്വത്തിൽ പത്ത് കോൺഗ്രസ് എം എൽ എമാർ ബി ജെ

ഇവരിൽ നാലുപേരെ ഉൾപ്പെ ടുത്തിയായിരിക്കും മന്ത്രിസഭാ വികസനം രദ്ദേഷ്ടങ കർണാടകത്തിൽ വിശ്വാസ വോട്ടിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി വൃക്തമാക്കിയതോടെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ അണി യറയിൽ തുടരുകയാണ് രാജിവെച്ച എം എൽ എമാരുടെ പിന്തുണ നേടി യെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തന്ത്രങ്ങൾ തയ്യാറാക്കുകയാണെന്നാണ് ബംഗളുരു റിപ്പോർട്ട്

ജെ പിയും തുടർ നടപടികൾ ചർച്ച ചെയ്തുവരിക യാണ്

എസ് സിയുടെ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു

എസ് സി വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ് രദേഷ്ടെടു ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രി ദാമോദരൻ കാളാശേരിയുടെ സംസ്കാരം ഇന്നുച്ചയ്ക്ക് ചേർത്തലയിലെ കാളാശേരി വീട്ടിൽ ഔദ്യോഗിക ബഹുമതി കളോടെ നടത്തും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പുലർച്ച ന യോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

കെ വാസുദേവൻ നായർ മന്ത്രിസഭയിൽ പട്ടികജാതി ദേവസ്വം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി യായിരുന്നു അദ്ദേഹം

ജെ രാധാകൃഷ്ണൻ അന്ത രിച്ചു

മികച്ച ഛായാഗ്രാ ഹകന് നൽകുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏഴുതവണ അദ്ദേഹം നേടിയിട്ടുണ്ട് നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങളും ലഭിച്ചു ദേശാടനം കരുണം അടയാളങ്ങൾ ഒറ്റക്കൈയ്യൻ ബയോസ്കോപ്പ് വീട്ടിലേക്കുള്ള വഴി ആകാശത്തിന്റെ നിറം എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രഹ്ണത്തിനാണ് അവാർഡ് ലഭിച്ചത്

നാളെ ഉച്ചയ്ക്കാണ് നെടുമ്പാശേരിയിൽ നിന്ന് ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുന്നത്

രദ്ദേഷ്ടങ സംസ്ഥാനത്ത് ഭൂപ്രകൃതിയും കൃഷി ഇനങ്ങളും അടിസ്ഥാനമാക്കി അ ഞ്ച് കാർഷിക ഇക്കോളജിക്കൽ സോണുകൾ ഉടൻ നിലവിൽ വരുമെന്ന് മ ന്ത്രി വി

ജില്ലാ സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ കാർഷിക സ്ഥിതിവിവര സർവ്വേ തൃശൂരിൽ ഉദ്ഘാട നം ചെയ്യുകയായിരുന്നു മന്ത്രി

മൊബൈൽ ബാങ്കിംഗ് അടക്കം സേവനങ്ങൾ ലഭൃമാക്കണം പ്രവാസി നിക്ഷേപങ്ങൾ കൂടുതലായി സമാഹരിക്കാൻ സഹകരണ ബാങ്കു കൾ ശ്രമിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കല്പ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച സഹകാരി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മന്തി

കെ ശൈലജ അർഹ യായി

രുട്ട്ട്ട്ട്ട്ട്ട്ട ആന്തൂരിലെ പ്രവാസി വൃവസായി സാജൻ പാറയിലിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ വൻ പ്രത്യാഘാതമുണ്ടാകു മെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി പറഞ്ഞു സാജന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആരംഭിച്ച രണ്ടുദിവസത്തെ പദയാത്ര തളിപ്പറമ്പ് ബക്ക ളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമ്മൻചാണ്ടി ദർവ്വെട്ടറ സംസ്ഥാനത്തെ മുത്തൂറ്റ് സ്ഥാപനങ്ങളിൽ തൊഴിൽ വകുപ്പ് വ്യാപക പരിശോധന നടത്തി സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തൊഴിൽ നിയമപ്ര കാരം അവകാശങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു പരിശോധന

രദേശ്ശ കഞ്ചാവുമായി പിടികൂടിയ പ്രതിയെ വിലങ്ങ് വെക്കുന്നതിനിടെ മലപ്പുറം അരീക്കോട് എസ് ഐ നൌഷാദിനെ കുത്തിപരിക്കേൽപ്പിച്ചു ബുള്ളറ്റ് സമദ് എന്ന കോർനോത്ത് അബ്ദുൾ സമദ് മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ്ക്ലാസ് കോട തിയിൽ കീഴടങ്ങി പരിക്കേറ്റ സബ് ഇൻസ്പെക്ടർ നൌഷാദ് കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് നൽകാ ട ത്തവരെയും അധിക തുക ചെലവഴിച്ചവരെയുമാണ് കമ്മീഷൻ അയോഗൃ രാക്കിയത്

വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പരാതികൾ സിറ്റിം ഗിൽ പരിഗണിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട ജലശക്തി അഭിയാൻ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം ഇന്ന് ജില്ലാ കലക്ടറുമായി ചർച്ച നടത്തും രണ്ടു ദിവസങ്ങളിലായി ജില്ലയിലെ ചിറ്റൂർ മലമ്പുഴ ബ്ലോക്കിലെ പദ്ധതി പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു ദർശ്ശിക്കു കൊല്ലം അഷ്ടമുടിക്കായലിൽ തുരുത്തുകളിലെ സ്കൂൾ വിദ്യാർത്ഥി കൾ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത വള്ളങ്ങളിൽ ജലയാത്ര നടത്തുന്ന തുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെ ടുത്തു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നടപടി

ജെ ആന്റണി നിർദ്ദേശം നൽകി

ടി ഒ ഓഫീസിലെ വിജിലൻസ് മിന്നൽ പരി ശോധനയിൽ പി ആർ

ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്നവർക്ക് രേഖകൾ നൽകാതിരിക്കുകയും ഏജന്റുമാരുടെ അപേക്ഷ കളിൽ വേഗം തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന